മധ്യപ്രദേശിലും രാജസ്ഥാനിലും മുഖ്യമന്ത്രിമാർ തിങ്കളാഴ്ച്ച സത്യപ്രതിജ്ഞ ചെയ്യും ചത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും

ചന്ദ്രശേഖരൻ

തിലോത്തമൻ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ മെച്ച പ്പെട്ട നിലയിൽ ൾ ൽ ൾ റഫേൽ കരാറിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്ത മാക്കി റഫേൽ യുദ്ധ വിമാന ഇടപാടിനെ പറ്റി ഉയർന്ന ആരോപണ ങ്ങൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാ രായ നിർമ്മല സീതാരാമനും അരുൺ ജെയ്റ്റലിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി റഫേൽ ഇടപാടിൽ അന്വേഷണം ആവശ്യമില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും ജെപിസി അന്വേഷണം ആവശ്യപ്പെ ടുന്ന കോൺഗ്രസ് നിലപാടിനെ അവർ എതിർത്തു ബധിരർക്ക് കേൾക്കാനാകില്ലെന്ന് ജെയ്റ്റലി ആവശ്യത്തോട് പ്രതികരിച്ചു അതേസമയം പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മറ്റി ഒരി ക്കലും കാണാത്ത സിഎജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പറഞ്ഞു റഫേൽ ഇടപാടിൽ വൻ അഴിമതിയു ണ്ടായെന്ന ആരോപണം അദ്ദേഹം ആവർത്തിച്ചു ഇത്തരമൊരു റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന് പിഎസി ചെയർമാൻ കൂടിയായ മല്ലി കാർജ്ജുൻ ഖാർഖെയും വെളിപ്പെടുത്തി റഫേൽ ഇടപാടിലെ സത്യം പുറത്തുകൊണ്ടുവരാൻ സംയുക്ത പാർലമെന്ററി കമ്മറ്റിയുടെ അന്വേഷണത്തിന് മാത്രമേ കഴിയു എന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ട്വിറ്ററിൽ അഭിപ്രായപ്പെട്ടു മധ്യപ്രദേശിലും രാജസ്ഥാനിലും മുഖൃമന്ത്രിമാർ തിങ്കളാഴ്ച്ച സത്യപ്രതിജ്ഞ ചെയ്യും മധ്യപ്രദേശിൽ പിസിസി പ്രസിഡന്റ് കൂടി യായ കമൽനാഥും രാജസ്ഥാനിൽ അശോക് ഗലോട്ടുമാണ് പുതിയ മുഖ്യമന്ത്രിമാർ

മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് സോറാം താങ്കെ ഇന്ന് ഉച്ചക്ക് സത്യപ്രതിജ്ഞ ചെയ്യും ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ലാതെ അനേകം പേർ അവശേ ഷിക്കുന്ന സാഹചര്യത്തിൽ പട്ടയ വിതരണ പ്രവർത്തനങ്ങൾ തുട രാനാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറി യിച്ചു കൊല്ലം ജില്ലയിലെ തിങ്കൾകരിക്കം വില്ലേജിൽ പട്ടയ വിത രണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രാജു ജെ

കോഴിക്കോട് ജില്ലാതല പട്ടയമേള മറ്റന്നാൾ നടത്തും ടൌൺഹാ ളിൽ മന്ത്രി ഇ

ശശീന്ദ്രൻ ചടങ്ങിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യും മന്ത്രി ടി

രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പട്ടയ മേളയിൽ പങ്കെടുക്കും കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് തിരുവനന്ത പുരത്ത് ചേരും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഇന്ദിരാഭവനിലാണ് യോഗം വനിതാ മതിലിന് എതിരായ പ്രചാരണ പ്രവർത്തനങ്ങളും ശബരിമല പ്രശ്നവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും

സിപിഐഎം കേന്ദ്ര കമ്മറ്റി യോഗം ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ ചേരും സമാകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ഭാവി പ്രക്ഷോഭങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം കേന്ദ്ര കമ്മറ്റിക്ക് മുന്നോടിയായി ഇന്നലെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു പി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ടി ഗൃഹോപകരണങ്ങളും സപ്ലൈകോ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി

ഇതിനായി വിവിധ കമ്പനികളുമായി ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

പ്രളയാനന്തരം സംസ്ഥാനത്ത് രൂക്ഷമായി ബാധിച്ചേക്കാവുന്ന പ്രശ്നങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ സിവിൽ സപ്ലൈസിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ഓരോ കുടുംബശ്രീ അംഗത്തിനും വരുമാനം ഉറപ്പാക്കുന്ന വിധം പരിശീലനം നടത്തണമെന്ന് മന്ത്രി കെ

ഭാരതപുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചാ യത്ത് തയാറാക്കിയ ദുരന്ത നിവാരണ പദ്ധതി രേഖയും ഗായത്രീ നദി നീർത്തട മാസ്റ്റർ പ്ലാനുകളും വൃക്ഷവൽക്കരണ രണ്ടാംഘട്ട കർമ്മപദ്ധതി രേഖയും ഇന്ന് മന്ത്രി കെ

വിത്തനശ്ശേരി കണ്ണോടിലാണ് പ്രകാശന ചടങ്ങ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ കൊഴിഞ്ഞാംപാറ എരുത്തേം പതി വടകരപതി പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണ പദ്ധതി കളും മന്ത്രി ഉദ്ഘാടനം ചെയ്യും

ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

പത്മനാഭനാണ് നിരാ ഹാരം അനുഷ്ഠിക്കുന്നത് ഈ മാസം മൂന്നിന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണനാണ് സത്യഗ്രഹം ആരം ഭിച്ചത് ആരോഗൃനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപ ത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർച്ചയായി ഹർത്താലുകൾ നടത്തി ബിജെപി കേരളത്തിലെ ജനങ്ങൾക്ക് ബാധൃതയായി മാറുകയാണെന്ന് കെപിസിസി വർക്കിങ്ങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി ജനദ്രോഹ നടപടികൾ അടിച്ചേൽപ്പിക്കുന്ന ബിജെപിയെ ജനങ്ങൾ വെറുത്തുക ഴിഞ്ഞതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു

ഇന്ത്യക്ക് വേണ്ടി ഇശാന്ത് ശർമയും ഹനുമ വിഹാരിയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിലെ മത്സരങ്ങൾ ഇന്ന് ആരംഭി ക്കും

അത്ലറ്റിക്സ് ഇനങ്ങൾ ത്യാഗരാജ സ്റ്റേഡിയത്തിലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുമായി നടക്കും

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോവയിൽ എഫ്സി ഗോവ ഒന്നിനെതിരെ അഞ്ച് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു ഇന്ന് ചെന്നൈയിൻ എഫ്സി ഡൽഹി ഡയർ ഡെവിൾസിനെ നേരിടും ഐ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഇന്ന് ഗ്ഗോകുലം കേരള എഫ്സി റിയൽ കശ്മീർ എഫ്സിയുമായി ഏറ്റുമുട്ടും കോർപ്പറേ ഷൻ ഇഎംഎസ് സ്റ്റേഡിയത്തിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സരം ഇന്ത്യൻ താരം പി

സിന്ധു ബീജിംഗിൽ ബാഡ്മിന്റൺ ലോക ടൂർ ഫൈനൽസിന്റെ സെമിയിൽ കടന്നു മൂന്നാം മത്സരത്തിൽ അമേ രിക്കൻ താരത്തെയാണ് സിന്ധു തോൽപ്പിച്ചത് ആദ്യ രണ്ട് കളി കളും സിന്ധു ജയിച്ചിരുന്നു പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ സമീർ വർമ്മയും സെമിയിലെത്തി അട്ടപ്പാടി ആദിവാസി സാക്ഷരതാ പദ്ധതിയുടെ മൂന്നാം ഘട്ടം അട്ടപ്പാടി കിലാ ഹാളിൽ മന്ത്രി പ്രൊഫ

പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടി ഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്യും വനിതാ മതിൽ നവോത്ഥാന കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യാണെന്ന് മന്ത്രി ടി

കേരളത്തെ ഇനിയും ഭ്രാന്താലയമാക്കുന്നത് തടയാൻ വനിതകളുടെ ചെറുത്ത് നിൽപ്പാണ് മതിലെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങാൻ നൂറ് കോടി രൂപ പലിശരഹിത വായ്പയായി നൽകുമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ ഇ

ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചെയർമാൻ അറിയിച്ചു

ഏതാനും വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു രാത്രി യോടെ ചോർച്ച അടച്ചു കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ കെഎസ്ആർടിസിയുടെ രാജ ധാനി പോയിന്റ് ടു പോയിന്റ് ബസ് സർവ്വീസ് ഇന്നാരംഭിക്കും

മൂന്നര മണി ക്കൂർ കൊണ്ട് ബസുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും പോലീസ് വേഷത്തിൽ ദേശീയപാതകൾ കേന്ദ്രീകരിച്ചു കവർച്ച നടത്തുന്ന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിലായി തൃശൂർ കാഞ്ഞിരത്തിങ്കൽ സ്വദേശി വിപിനാണു അറസ്റ്റിലായത്

കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം ഗൃാപ് ഭാഗത്ത് കൂടി ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഗതാഗതം നിരോധി ച്ചു പാതയോട് ചേർന്ന മലയുടെ ഒരു ഭാഗം ഇന്നലെ ഇടിഞ്ഞ് വീണതിനെ തുടർന്നാണ് നടപടി മണ്ണും കല്ലും നീക്കാൻ ശ്രമം തുട രുകയാണ് ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക്

ഉദയാസ്തമന പൂജ കളഭ പൂജ സഹസ്രകലശാഭിഷേകം എന്നീ വിശേഷാൽ പൂജകൾ ഇന്ന് ഉണ്ടാ വും ശബരിമലയിൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകൻ സന്നിധാ നത്ത് നടപന്തലിൽ കുഴഞ്ഞുവീണ് മരിച്ചു തമിഴ്നാട് തിരുത്തണ്ണി സ്വദേശി ഭാസ്കർ ആണ് മരിച്ചത്

കാസർകോട്ടു നിന്നും ആരംഭിച്ച സ്നേഹയാത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ സംഘ ടിപ്പിച്ച മാനവിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗോ എയറിന്റെ പ്രതിദിന സർവീസ് ഇന്ന് രാവിലെ ആരംഭിച്ചു

എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് അന്താരാഷ്ട്ര സർവീസുകളും ഇന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ഷാർജയിലേക്കും ദോഹയിലേക്കുമാണ് പുതിയ സർവീസ് സംസ്ഥാന ഗവൺമെന്റ് വികസന് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാൻ ആയിരം കോടി രൂപയുടെ കടപത്രം പുറത്തിറക്കും അടുത്ത ചൊവ്വാഴ്ച്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീ സിൽ ഇ കുബൈർ സിസ്റ്റത്തിലാണ് ലേലം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് ബംഗ്ലാദേശികളെ കോടതി റിമാൻഡ് ചെയ്തു